ചിദംബരത്തെയും കാർത്തി മകൻ ചിദംബരത്തെയും പ്രതിയാക്കി സിബിഐ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു

കനത്തമഴ അടുത്ത അഞ്ചു ദിവസം കൂടി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം

ഇപ്പോഴത്തെ ഗവൺമെന്റ് ഗ്രാമങ്ങളുടെ പ്പൈദ്യുതീകരണത്തിനും വൈദ്യുതി വ്യാപനത്തിനും മുന്തിയു പ്രിഗണനയാണ് നൽകിയത്

രാജ്യത്ത് ഏറ്റവും ഒടുവിൽ ഈ വർഷം ഏപ്രിൽ രണ്ടിന് മണിപ്പൂരിലെ ലെയ്സാൻങ് ഗ്രാമം വൈദ്യുതീകരിക്കപ്പെട്ട കാര്യം ശ്രീ മോദി ഓർമ്മിപ്പിച്ചു

കൂടുതൽ വിവരങ്ങളുമായി സുവർണ്ണ

സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചരണങ്ങളാൽ ഇത്തരം അക്രമസംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നു സംസ്ഥാനങ്ങൾക്കും സമൂഹമാധ്യമ സേവന ദാതാക്കൾക്കും ഇക്കാര്യത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി അറിയിച്ചു സമൂഹ മാധ്യമ സൈറ്റുകൾക്ക് നിയന്ത്രണം കൊണ്ടു വരണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ക്രമസമാധാന പാലനം സംസ്ഥാനഗവണ്മെന്റുകളുടെ ചുമതലയാണെന്നും അക്രമസംഭവങ്ങളുണ്ടായാൽ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി ഉറപ്പു വരുത്താൻ ബന്ധപ്പെട്ട മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചു രാജ്യസഭാംഗങ്ങളും പ്രശ്നത്തിൽ ഉത്കണ്ഠ അറിയിച്ചു ശൂന്യവേളയിൽ പ്രശ്നമുന്നയിച്ച അംഗങ്ങൾ സമൂഹമാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ദുരപയോഗം ചെയ്യപ്പെടുന്നതായും ആരോപിച്ചു രാജ്യസഭാ ചെയർമാൻ കൂടിയായ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട എല്ലാവരുമായും ചർച്ച നടത്താൻ ഗവണ്മെന്റിന് നിർദ്ദേശം നൽകുമെന്ന് അറിയിച്ചു ന്യൂസ് ഡസ്ക് ആകാശവാണി

ചിദംബരത്തെയും മകൻ കാർത്തി ചിദംബരത്തെയും പ്രതിയാക്കി സിബിഐ അനുബന്ധ കൂറ്റപത്രം സമർപ്പിച്ചു സിബിഐ സ്പെഷ്യൽ ജഡ്ജി ഒ

് ഇതിനായി കമ്പനിയിൽ നിന്ന് വൻതുക കാർത്തി ചിദംബരം കൈക്കൂലി വാങ്ങിയെന്ന് എൻഫോഴ്സ്മെന്റ് വിഭാഗം കണ്ടെത്തിയിരുന്നു

അതിൽ കൂടുതൽ പണം കൈവശം സൂക്ഷിക്കുന്നതായി കണ്ടെത്തിയാൽ തുക ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു

ഇതിനായി വരുംമാസങ്ങളിൽ പുതിയ നയം നടപ്പിലാക്കുമെന്ന് ഫെയ്സ് ബുക്ക് വക്താവ് അറിയിച്ചു കൃത്യവും വൃക്തവുമല്ലാത്ത ഉള്ളടക്കം വൃാജ ഫോട്ടോകൾ എന്നിവ ഉൾപ്പെടുത്തി ലോകത്തിൽ കലാപം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് ഫെയ്സ്ബുക്ക് നീക്കം ചെയ്യുക വ്യാജ വാർത്തകളെ തുടർന്ന് നാട്ടിൽ ഉടലെടുക്കുന്ന അപകടകരമായ അവസ്ഥ തടയാനുള്ള ഫെയ്സ് ബുക്ക് പ്രചാരണത്തിന്റെ ഭാഗമായാണ് നടപടി

ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു കൊണ്ട് സംസാരിച്ച കോൺഗ്രസ് അംഗം ശ്രീ ആനന്ദ് ശർമ്മ അഴിമതിയെക്കുറിച്ച് അധികൃതർക്ക് വിവരം നൽകുന്നവരെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമായ വിസിൽ ബ്നോവേഴ്സ് പ്രൊട്ടക്ഷൻ ബില്ലും അഴിമതി നിരോധന ഭേദഗതി ബില്ലിനോടൊപ്പം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അഴിമതി നിരോധനത്തിനായുള്ള കേന്ദ്ര സ്ഥാപനമായി ലോക്പാലിന്റെ പ്രവർത്തനം ആരംഭിക്കാത്തതിലുള്ള പ്രതിഷേധവും ശ്രീ ആനന്ദ് ശർമ്മ രാജ്യസഭയിൽ ഉയർത്തി അഴിമതി നിർമ്മാർജ്ജനത്തിന് എൻഡിഎ ഗവൺമെന്റ് കൈക്കൊണ്ട വിവിധ നടപടികളെക്കുറിച്ച് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ബിജെപി എം

അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഭരണ നിർവ്വഹണത്തിലും നിയമവ്യവസ്ഥയിലും വലിയ പരിഷ്ക്കാരങ്ങൾ അനിവാര്യമാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത സമാജ്വാദി പാർട്ടി എം പി രവിപ്രകാശ് വർമ്മ പറഞ്ഞൂ ന്യൂസ്ഡസ്ക് ആകാശവാണി

സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

ഇന്ന് മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടെങ്കിലും പല പ്രദേശങ്ങളും ഇപ്പോഴും വെള്ളത്തിലാണ് മഴക്കെടുതി രൂക്ഷമായ കോട്ടയം ജില്ലയിൽ പലയിടങ്ങളിലും വെള്ളം ഇറങ്ങി തുടങ്ങി അതേസമയം ആലപ്പുഴ ജില്ലയിലെ കൂട്ടനാട് മേഖലയിൽ വെള്ളക്കെട്ട് തുടരുകയാണ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധി പ്രഖ്യാപിച്ചു തിരുവല്ല താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെയും മറ്റന്നാളും അവധിയായിരിക്കും കോട്ടയം ജില്ലയിലും ചിലയിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്

ഇരിട്ടി പുഴബാവലിപുഴ എന്നിവ കരകവിഞ്ഞൊഴുകുകയാണ്

പുതിയ നോട്ടുകൾക്കൊപ്പം നിലവിലുള്ള നൂറുരൂപ നോട്ടുകളും വിനിമയ രംഗത്തുണ്ടാകുമെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു

ഉത്തരകശ്മീരിലെ കുപ്വാര ജില്ലയിലെ ബത്പോര വനമേഖലയിലാണ് സംഭവം രണ്ടോ മൂന്നോ ഭീകരർ പ്രദേശത്ത് അകപ്പെട്ടതായി സംശയിക്കുന്നു

പൊതു ജനങ്ങൾക്കിടയിൽ കായിക താൽപര്യം വളർത്തെയെടുക്കാനും യുവജനങ്ങളെ ദേശീയ തലത്തിലുള്ള മത്സരങ്ങളിലേക്ക് തെരഞ്ഞെടുക്കുന്നതിനുമായി ഈ വർഷത്തെ സദ്ഭാവന പദ്ധതിയുടെ ഭാഗമായാണ് രണ്ടു ദിവസത്തെ മത്സരം സംഘടിപ്പിച്ചത് എല്ലാ വർഷവും കരസേന സംഘടിപ്പിക്കുന്ന മത്സരത്തിന് വൻ ജനപിന്തുണയാണുള്ളത്

ശ്രീലങ്കൻ വ്യോമയാന മന്ത്രി നിമൽ സിരിപാല ഡിസിൽവ പാർലമെന്റിൽ അറിയിച്ചതാണ് ഇക്കാര്യം